വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചു

കേസിൽ വാദം കേൾക്കുന്നതിന് സുപ്രീംകോടതി അഞ്ചംഗ ഭരണഘടനാ ബഞ്ച് രൂപീകരിച്ചു

പൂനെയിൽ ഇന്ന് തുടക്കം

സോലാപൂരും മഹാരാഷ്ട്രയിലെ മറാത്തുവാട മേഖലയും തമ്മിലുള്ള ഗതാഗതം ഇതോടെ കൂടുതൽ സുഗമമാകും ഉത്തർപ്രദേശിലെ ആഗ്രയും പ്രധാനമന്ത്രി ഇന്ന് സന്ദർശിക്കുന്നുണ്ട് ഒരു റിപ്പോർട്ട്

മലിന ജലം ഒഴുക്കുന്നതിനുള്ള ഭൂഗർഭ സംവിധാനവും സോലാപൂരിലെ മൂന്ന് സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും രാജ്യത്തിന് സമർപ്പിക്കും

നഗരത്തിലെ ശുദ്ധ ജലവിതരണം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതാണ് പദ്ധതി

ആഗ്ര സ്മാർട്ട് സിറ്റിയ്ക്കായി ഇൻ്റർഗ്രേറ്റഡ് കമ്മാന്റ് ആൻഡ് കൺട്രോൾ സെന്ററിന്റെയും എസ്

മെഡിക്കൽ കോളേജിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെയും നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്തി നിർവ്വഹിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പൊതുവിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ജോലിയിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പത്ത് ശതമാനം സംവരണം ബിൽ വിഭാവനം ചെയ്യുന്നു

ഐ എ ഡി എം കെ അംഗങ്ങൾ വോട്ടെടുപ്പ് ബഹിഷ്ക്കരിച്ചു മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്ക അവസ്ഥയുള്ള പൌരൻമാർക്ക് തുല്യ അവസരം ഉറപ്പാക്കുന്നതാണ് ബില്ലെന്ന് ഇതു സംബന്ധിച്ചു ചർച്ചകൾക്ക് മറുപടി പറയവെ സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി താവർ ചന്ദ് ഗെഹ്ലോട്ട് പറഞ്ഞു പട്ടികജാതിപട്ടികവർഗ്ഗു മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവർക്കുള്ള നിലവിലുള്ള സംവരണ തത്വങ്ങളെ യാതൊരു തരത്തിലും ബാധിക്കാത്ത രീതിയിലാണ് ഭേദഗതി ബില്ലെന്ന് നേരത്തെ ബിൽ അവതരിപ്പിക്കവേ ശ്രീ

സംവരണ ഭേദഗതി ബില്ലിന്റെ അന്തസത്ത തന്റെ പാർട്ടി അംഗീകരിക്കുന്നതായും ബില്ലിനെ പിന്തുണയ്ക്കുന്നതായും ഇതു സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കം കുറിച്ച കോൺഗ്രസ്സ് അംഗം കെ

തോമസ് പറഞ്ഞു

ജെ പി അദ്ധ്യക്ഷൻ രാംവിലാസ് പസ്വാൻ പറഞ്ഞു

എം സി യും ബില്ലിനെ അനുകൂലിച്ചു ബില്ലിൻമേൽ ഇപ്പോൾ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്

കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിങ് സ്മൃതി ഇറാനി ഹർഷവർദ്ധൻ ബിജെപി അദ്ധ്യക്ഷൻ അമിത് ഷാ തുടങ്ങിയവരും ബില്ലിനെ സ്വാഗതം ചെയ്തു

ഈ പ്രദേശത്ത് കഴിഞ്ഞദിവസവും പാകിസ്താൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരുന്നു വെടിവയ്പിൽ ഇന്ത്യൻ സൈനികർക്കാർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല

ദുർബലമായ ചില രാജ്യങ്ങൾ തീവ്രവാദത്തെ ഒരു പുതിയ ആയുധമാക്കുന്നതായും അത് നയരൂപീകരണത്തിന്റെ ഭാഗമാക്കി മറ്റ് രാജ്യങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും ശ്രീ റാവത്ത് പറഞ്ഞു

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗായ് അദ്ധ്യക്ഷം വഹിക്കുന്ന ബഞ്ചിൽ എസ്

വി രമണ യു

കേസിൽ നാളെ മുതൽ വാദം കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്

അടുത്ത മൂന്ന് വർഷത്തേക്ക് നിരക്കിന് പ്രാബല്യമുണ്ടാകുമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് അറിയിച്ചു

ചീഫ് ജസ്റ്റിസ് എ

ഷാ അടങ്ങിയ ഡിവിഷൻ ബഞ്ചിന്റേതാണ് നടപടി ഗവൺമെന്റ് ബംഗ്ലാവുകൾ അനുവദിച്ച ഉത്തരവ് എന്തുകൊണ്ട് റദ്ദാക്കിയില്ലെന്നും മുൻ മുഖ്യമന്ത്രിമാർക്ക് അയച്ച നോട്ടീസിൽ കോടതി ആരാഞ്ഞു

കൊല്ലം ജില്ലയിൽ സംസ്ഥാന ജലഗുതാഗ്രിത വകുപ്പിന്റെ ബോട്ട് സർവ്വീസുകൾ രണ്ടാം ദിവസവും മുട്ടങ്ങി ഇടുക്കി കണ്ണൂർ കാസർകോഡ് ജില്ലകളിൽ പണിമുടക്ക് രണ്ടാം ദിവസവും പൂർണ്ണമാണ് കണ്ണൂർ പയ്യന്നൂരിൽ മലബാർ എക്സ്പ്രസ്സ് ചെന്റൈപ്പുമയിൽ എന്നീ ട്രെയിനുകൾ സമരക്കാർ തടഞ്ഞു കോട്ടയത്തും ് ജനജീവിതം ഭാഗികമായി സ്തംഭിച്ചു

ഉത്തര കർണാടകയിലെ ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി സുഷമാ സ്വരാജ് നടത്തിയ ഇടപെടലാണ് മത്സൃത്തൊഴിലാളികളുടെ മോചനത്തിന് കാരണമായത്

ഡൽഹിയിലെ നാഷണൽ ഹെറാൾഡിന്റെ ഓഫീസ് ഒഴിയണമെന്ന ഉത്തരവിനെതിരെ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡാണ് കോടതിയെ വീണ്ടും സമീപിച്ചത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഹെറാൾഡ് ഹൌസിന്റെ വാടക കരാറിലെ നിബന്ധനകൾ ലംഘിച്ചതിനെ തുടർന്ന് ഓഫീസ് ഒഴിയണമെന്ന് ചൂണ്ടിക്കാട്ടി ഗവൺമെന്റ് നേരത്തെ പ്രസാദകർക്ക് നോട്ടീസ് അയച്ചിരുന്നു

ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന ഇറാൻ വിദേശകാര്യ മന്ത്രി മൊഹമ്മദ് ജാവേദ് സ്രീഫ് ഇത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തി ചബഹാർ തുറമുഖം പ്രവർത്തനക്ഷമമാക്കാൻ കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങൾക്ക് വിദൂര ഭാവിയിൽ ഏറെ ഗുണം ചെയ്യുന്നതാണ് തുറമുഖമെന്നും കൂടിക്കാഴ്ചയ്ക്കു ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ശ്രീ

ചബഹാർ മേഖലയിൽ പെട്രോക്ട്രെമിക്കൽ രാസവളം എന്നിവയിൽ നിക്ഷേപം നടത്താൻ ഇന്ത്യ് ശ്രമിക്കണമെന്ന് ശ്രീ

അഫ്ഗാനിസ്ഥാനിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രഖ്യാപനം സെൽമേയ് നയിക്കുന്ന സംഘം ഇന്തൃക്ക് പുറമേ പാകിസ്ഥാൻ അഫിഗാനിസ്ഥാൻ എന്നീ രാജൃങ്ങളും സന്ദർശിക്കും എന്നാൽ സന്ദർശനത്തിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല

ഛത്രപതി ശിവജി സ്റ്റേഡിയത്തിൽ വ്ട്രിക്കിട്ട് നടക്കുന്ന ദീപശിഖ പ്രയാണത്തിൽ കേന്ദ്ര കായിക മന്ത്രി ് രാജ്യവർദ്ധൻ റാത്തോഡ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവർ പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ സന്ദേശത്തിലൂടെ ചടങ്ങിനെ അഭിസംബോധന ചെയ്യും

യൂത്ത് ഒളിമ്പിക്സിലെ ഷൂട്ടിങ് വിഭാഗം സ്വർണ്ണ മെഡൽ ജേതാവ് മനു ഭാക്കർ സൌരഭ് ചൌധരി ഭാരോദ്ധഹന താരം ജെറേമി ലാൽറിനുങ്ക എന്നിവർ പങ്കെടുക്കും